സമയമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അന്താരാഷ്ട്ര സഹകരണത്തിനും സമാധാനത്തിനുമുള്ള സോൾ സമാധാനപുരസ്ക്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു

പരാജയപ്പെട്ടുവെന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്

ഉറപ്പാക്കണമെന്ന് സൂപ്രീംകോടതി

ദക്ഷിണ കൊറിയയിലെ സോളിൽ പ്രസിഡന്റ് മൂൺ ജെ ഇന്നുമായി നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

പ്രതിരോധ ഉപകരണ നിർമ്മാണത്തിൽ ഇരുരാജൃങ്ങളും സഹകരിക്കും

അടിസ്ഥാന സൌകര്യ വികസനം ഭക്ഷ്യസംസ്കരണം പുതുസംരംഭകത്വം അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ എന്നീ മേഖലകളിൽ ഇരുരാജ്യങ്ങളും സഹകരിക്കും പ്രസാർ ഭാരതിയുടെ ഡി

ചാനൽ ദക്ഷിണ കൊറിയയിലും അവിടുത്തെ കെ ബി

വേൾഡ് ചാനൽ ഇന്തൃയിലും പ്രക്ഷേപണം ചെയ്യാൻ ധാരണയായി

ഇന്ത്യയുടെ വളർച്ച ലോകത്തിന് ഗുണകരമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയായ ഭീകരവാദത്തിനെതിരെ ഒന്നിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തോയ്ബു തുടർങ്ങിയ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് തട്ടിയുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതായി സംഘടന വൃക്തമാക്കി പാകിസ്ഥാൻ സ്വന്തം തന്ത്രപരമായ പാളിച്ചകൾ പ്രിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരണമെന്ന് പാരീസ് ആസ്ഥാനമായി സംഘടന നിർദ്ദേശിച്ചു

ഇന്നലെ രാത്രിയിലാണ് സംഭവം ബരാമുള്ളയിലെ വാർപോരയിൽ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉ ായത് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല തെരച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ വാർത്താവിനിമയ സേവനങ്ങളും ഇന്റർനെറ്റ് ബന്ധവും സൈനൃം വിച്ഛേദിച്ചിരിക്കുകയാണ്

ആൾകൂട്ട ആക്രമണങ്ങൾ തടയുന്നതിനും കശ്മീരി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയി അധ്യക്ഷനായ ബഞ്ചിന്റേതാണ് ഉത്തരവ്

പുൽവാമ ഭീകരാക്രമണത്തെ അപലപ്പിച്ച് ആഭൃന്തരമന്ത്രി രാജ് നാഥ് സിംഗ് വീരമൃത്യു വരിച്ച ജഡ്ന്മാരുടെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നാല്പാമത് ഇന്ത്യ ആസിയാൻ എക്സ്പോ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ സുരക്ഷ ഉറപ്പു വരുത്തുന്നതിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ സിംഗ് ്പറഞ്ഞു

രാമേശ്വരത്ത് പാർട്ടിയുടെ ബൂത്ത്തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജെയ്ഷെ മുഹൃമ്മദ് പ്രവർത്തകരായ കുൽഗാം സ്വദേശി ഷാനവാസും പുൽവാമ സ്വദേശി അലി അഹമ്മദ് മാലിക്കുമാണ് പിടിയിലായതെന്ന് ഡ്വി ജീപി ഒ

തദ്ദേശീയരായ ചെറുപ്പക്കാരെ സ്ഘ്ടന്യിൽ ചേർക്കാനുള്ള ആസൂത്രണത്തിലായിരുന്നു ഇവർ

ഇത്തരം കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ രാജ്യത്തിന് സമയമില്ലെന്ന് ബിജെപി വക്താവ് സാംബിത് പത്ര പറഞ്ഞു സംഭവത്തിനു മുമ്പ് രാവിലെ എടുത്ത ചിത്രങ്ങളുടെ പേരിലുള്ള വ്യാജ വാർത്തകളെ ബിജെപി തള്ളിക്കളഞ്ഞു രാജ്യം ഏകസ്വരത്തിൽ പ്രതികരിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുയാണെന്നും സാംബിത് പത്ര പറഞ്ഞു

നിരവധി ആളുകൾ ചികിത്സയിലാണ് ഇന്നലെ വൈകുന്നേരം ഹാലിമാര പ്രദേശത്താണ് ദുരന്തമു ായതെന്ന് ഗോലാഘട്ട് എസ് പി പുഷ്പരാജ് സിംഗ് അറിയിച്ചു മദ്യവിമുക്ത പ്രദേശമാണിതെന്നും വ്യാജ മദ്യം പുറത്തു നിന്നും എത്തിച്ചതാകാമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു പോലീസും എക്സൈസും അന്വേഷണം ആരംഭിച്ചു

പ്രഗ്ുരുതരമായി പരിക്കേറ്റ മറ്റ് നാലുപേരെ അടുത്തുള്ള ആശുപൃത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടു ്

കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ചയ്ക്കു ശേഷമാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്

ആരോപണ വിധേയരായ മറ്റുള്ളവരുടെ മൊഴികളും പിടിച്ചെടുത്ത രേഖകളും ആധാരമാക്കിയാണ് എൻഫോഴ്മെന്റ് ചോദ്യം ചെയ്യുന്നത്

ഇന്ത്യക്കായി നാല് വിക്കറ്റ് വീഴ്ത്തിയ എകതാ ബിഷ്ട് കളിയിലെ താരമായി

ഡ്രൽഫി ആൾ ഇന്ത്യ ഇൻസ്റ്റിട്ട്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നുള്ള വൈദ്യപരിശോധന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ജാമൃ കാലാവധി നീട്ടിയത് രാജീവ് സക്സേനയുടെട്ട ജാമ്യാപേക്ഷ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും

തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലഘു ഹെലികോപ്ടറുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും നാവിക സേനാപതിപ്പിന്റെ പ്രദർശനം ഇന്നു നടന്നു അമേരിക്ക റഷ്യ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുത്തു ബുധനാഴ്ച ആരംഭിച്ച ഷോയുടെ ഭാഗമായി നിരവധി തന്ത്രപ്രധാന കരാറുകൾക്ക് ധാരണാപത്രം ഒപ്പു വച്ചിട്ടു ്

കഴിഞ്ഞ വർഷം സെപ്തംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയ്ക്ക് തുടക്കം കുറിച്ചത്